നിശാഗന്ധിയിൽ ്മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും മരടിലെ ഫ്ളാറ്റുകൾ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ ഫ്ളാറ്റുടമകൾക്ക് നോട്ടീസ് നൽകി തിരുവോണ ദിവസമായ നാളെ നിരാഹാരമിരിക്കുമെന്ന് ഫ്ളാറ്റ് ഉടമകൾ

ജോസഫിനെ അനുനയിപ്പിക്കാൻ യു ഡി എഫ്

ജമ്മുകാശ്മീർ വിഭജിച്ച ശേഷമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കേന്ദ്രം മൂന്നംഗ സമിതിയെ നിയോഗിച്ചു തിരുവോണം ഇൻറ തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി ഉത്രാടപ്പാച്ചിൽ തുടരുന്നു വിശദ വിവരങ്ങളുമായി ജേക്കബ് അറയ്ക്കൽ

പ്രളയക്കെടുതികളും പ്പെകൃതിക്ഷോഭങ്ങളും തിരുവോണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും ഇല്ലാതാക്കുമെന്ന ആശങ്കകൾക്കിടയിലും ഒരുമയുടെയും അതിജീവനത്തിന്റെയും സന്ദേശവുമായാണ് മലയാളി ഇത്തവണയും മാവേലിയെ വരവേൽക്കുന്നത് കർക്കിടകത്തിന്റെ ദുർഘടം പെയ്തൊഴിഞ്ഞ ശേഷം ചിങ്ങ പുലരിയിൽ അത്തം നാൾ മുതൽ കാട്ടിലും മേട്ടിലും പാടത്തും പറമ്പിലുമെല്ലാം പൂതേടി പോകുന്ന കുട്ടികളുടെ പൂവിളികളും വൈവിധ്യമാർന്ന ആഘോഷതിമിർപ്പുകളും ഓണത്തിന്റെ വരവ് വിളിച്ചോതുന്നുണ്ട് സംസ്ഥാനത്തുടനീളം വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്

ഓണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കാനുള്ള തിരക്കാണ് ഉത്രാടപ്പാച്ചിൽ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

തിരുവനന്തപുരം നിശാഗന്ധി ഓഡിളോറിയത്തിൽ അല്പ സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണ്ടുട്ടിയി വിജയൻ ഉദ്ഘാടനം നിർവ്വഹിക്കും ടൂറിസം സഹകരണ്ടു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്നു ചടങ്ങിൽ ചലച്ചിത്ര പിന്നണി ഗായിക കെ

ചലച്ചിത്രതാർങ്ങളായ കീർത്തി സുരേഷും ടൊവിനോ തോമസും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും

ഓണാഘോഷത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരം ദീപാലംകൃതമായി

അതിനിടെ ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓണാഘോഷ വേദികളിലടക്കം സുരക്ഷ കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് മുതൽ ഞായറാഴ്ച വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

തിരുവോണ നാളിന് ഇനി മണിക്കൂര്യുക്ൾ മാത്രം ബാക്കിനിൽക്കെ ഓണത്തപ്പനെ വരവേൽക്കുവ്യാന്ുള്ള തിരക്കിലാണ് മലയാളികൾ പഞ്ഞമാസമായ കർക്കിടകൽക്തിന്റ് പുറമെ അപ്രതീക്ഷിതമായി വന്ന പ്രളയത്തെ അതിജീവിച്ചുണ് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നത്

ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഓണാശംസകൾ നേർന്നു കേരളം ലോകത്തിനു നൽകുന്ന സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാകട്ടെ ഓണാഘോഷമെന്ന് ഗവർണർ തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

സമൃദ്ധിയുടെയും സമഭാവനയുടെയും ഉത്സവമായി ഇത്തവണത്തെ ഓണാഘോഷം മാറട്ടെയെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി മനുഷ്യമനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മനുഷ്യർക്കിടയിൽ സ്നേഹവും ശാന്തിയും ഒത്തൊരുമയും കൂടുതൽ ശക്തിയോടെ നിലനിൽക്കേണ്ട അവസരമാണ് ഓണക്കാലമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

ഗവർണറുടെ ഭാര്യ രേഷ്മു ആരിഫ് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയൻ എന്നിവർ സ്റ്റ്യുക്തമായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി കടകംപള്ളി സു്ഴേന്ദ്രന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്

തീർത്ഥാടകർക്കായി ഒരുക്കിയ ഉത്രാടദിന സദ്യയുടെ ഉദ്ഘാടനം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് വിളക്ക് തെളിച്ച് നിർവ്വഹിച്ചു തിരുവോണം അവിട്ടം ചതയം ദിനങ്ങളിലും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്

തിരുവോണ സദ്യ ആറന്മുള തിരുവോണ സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായി മാങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു

നാളെ പുലർച്ചെ ആറന്മുള ക്ഷേത്ര കടവിൽ എത്തുന്ന തിരുവോണത്തോണിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും സംഘവും ച്ചേർന്ന് സ്വീകരിക്കും

കൂടുതൽ വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും വിവാദങ്ങളിൽ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കേരളാ കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം നേതാക്കളുമായി യു ഡി എഫ് ഉപസമിതി ഇന്ന് സമവായ ചർച്ച നടത്തി

ഡി എഫ് കൺവീനർ ബെന്നി ബെഹ്നാന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം കോട്ടയം ഡി സി

അനുനയിക്കാൻ ശ്രീ

ജോസഫിനോട് യു

എഫ് നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് എൽഡിഎഫ് എൻഡിഎ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്

ഫ്ളാറ്റ് ഒഴിയാത്തപക്ഷം സുപ്രീംകോടതി വിധിയുടെ ലംഘനമായി കണക്കാക്കുമെന്ന് നോട്ടീസിൽ പ്രിയുന്നു മരട് നഗരസഭയുടെ പ്രത്യേക യോഗം ചേർന്നാണ് ഇത് സ്സംബന്ധിച്ച് തീരുമാനം എടുത്തത്

എസ്

ശനിയാഴ്ച ചേർന്ന ഔദ്യോഗിക ഭാഷാ ഉന്നതതല യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്

നിലവിലുള്ള ആസ്തി ബാധ്യതകൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വീതിച്ചു നൽകുന്നത് സംബന്ധിച്ച് സമിതി അന്തിമ തീരുമാനമെടുക്കുമെന്ന് പ്രധാന്മമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി ഡോ

അറസ്റ്റ് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജമാ അത്തുൾ മുജാഹിദീൻ പ്രവർത്തകനെന്ന് സംശയിക്കുന്ന ഒരാളെ ചെന്നൈയിൽ നിന്ന് അറസ്റ് ചെയ്തു കൊൽക്കത്ത പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ് സാണ് അസദുള്ള ഷെയ്ക്ക് എന്നയാളെ അറസ്റ്റ് ചെയ്തത് ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള സൈനൃത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഓണ നാളുകളിൽ അതീവ ജാഗ്രത പൂലർത്താൻ ഡി

ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്